വിശ്വാസ ചർച്ചയിൽ വോട്ടെടുപ്പ് നടത്താതെ കർണാടക നിയമസഭ ഇന്നലെ രാത്രി പിരിഞ്ഞു

കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതൃ വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റോട്ട് പ്രിധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇന്ത്യ

കേരളത്തിൽ മഴ തുടരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്

വോട്ടെടുപ്പിൽ അംഗങ്ങളുടെ ചർച്ച പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഇന്ന് ചേരാനായി സഭ പിരിഞ്ഞു രാത്രി വൈകിയാലും വോട്ടെടുപ്പിന് സന്നദ്ധമാണെന്ന് ബി ജെ പി അംഗങ്ങൾ നിലപാടെടുത്തു കോൺഗ്രസ് പ്രനിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ ചർച്ചകൾ ഇസ്സ് രാവിലെ എട്ടിന് തുടങ്ങാമെന്ന് നിർദ്ദേശം വച്ചു എന്നിൽ സ്പീക്കർ അംഗീകരിച്ചില്ല ചർച്ച ഇന്ന് വൈകിട്ട് നാലുമണിയ്യോടെ പൂർത്തിയാക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിക്ക് ആറുമണിയോടെ മറുപടി നൽകാനാവും ഈ നിർദ്ദേശമാണ് സ്പീക്കർ അംഗീകരിച്ചത് എന്നാൽ ബി ജെ പി അംഗങ്ങൾ ഇതിനെ എതിർത്തു നേരത്തെ നിർദ്ദേശിച്ചിരുന്നതുപോലെ തിങ്കളാഴ്ച തന്നെ ചർച്ച പൂർത്തിയാക്കണമെന്ന് ബി ജെ

കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് സ്ഥിരമാണ്

ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ

ഷിംല കരാറിലും ലാഹോർ ഉച്ചകോടിയിലും മുന്നോട്ടുവച്ചി കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പ്പരിഹരിക്കാനാവൂവെന്നും ശ്രീ

കശ്മീർ പ്രശ്നത്തിൽ ് മധ്യിസ്ഥത വഹിക്കാൻ ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടുവെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു

എൽ

എസ് എൽ

രാജ്യത്തിന്റെ ചരിത്രപരമായ ചന്ദ്രയാത്രയുടെ തുടക്കമാണിതെന്ന് ഐ എസ് ആർ

വിജയകരമായ വിക്ഷേപണത്തിന് അദ്ദേഹം ഐ

ഒ യിലെ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു

ചാന്ദ്രദൌത്യം വിജയിക്കുന്നതോടെ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജൃങ്ങൾക്കൊപ്പം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത് രാജ്യമായി ഇന്ത്യ മാറും ദൌതൃത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഐ

ഒ യിലെ ശാസ്ത്രജ്ഞരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു

ന്യൂഡൽഹിയിൽ നടന്ന ഇരുരാജ്യങ്ങളുടെയും പരസ്പര സഹകരണം ലക്ഷ്യമാക്കിയുള്ള സംയുക്ത കമ്മീഷന് ഇരുവരും അധ്യക്ഷത വഹിച്ചു വ്യാപാര സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക മേഖലകളിൽ സഹകരണം ലക്ഷ്യമാക്കിയുള്ളതാണ് കമ്മീഷൻ വിശദാംശങ്ങളുമായി ബിന്ദു

ഇന്ത്യയും യുറേഷ്യൻ സാമ്പത്തിക യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിന്മേൽ സമവായത്തിലെത്താൻ നടപടികൾ ത്വരിതപ്പെടുത്തുക ഉഭ്യകൃക്ഷി സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠനം പൂർത്തിയാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇരുരാജ്യങ്ങൾക്കിടയിലുള്ള കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും കപ്പൽ നിർമാണം ഉൾനാടൻ ജലഗതാഗതം എന്നീ മേഖലകളിൽ സഹകരണം സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു എണ്ണ വാതക മേഖലകളിൽ വർഷങ്ങളായി നിലനിന്നുവരുന്ന സഹകരണം മാനിച്ച് ഈ മേഖലകളിൽ നിക്ഷേപത്തിനായുള്ള അവസരങ്ങളെ കുറിച്ച് പഠിക്കാനും തീരുമാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ഇന്ത്യൻ ദൌത്യമായ ഗഗൻയാന്റെ പശ്ചാത്തലത്തിൽ ഇരുരാജ്യങ്ങളുടെയും ബഹിരാകാശ ഗവേഷണ ഏജൻസികളായ ഐ എസ്

ഒ റോസ്കോസ്മോസ് എന്നിവ തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കാനും തീരുമാനമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ചിട്ടിക്കമ്പനിയുടെ ഉടമ പാർഥ ചക്രബർത്തിയെ നേരത്തെ സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു

കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും കാർത്തികപ്പള്ളി താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പ് ആയി പ്രവർത്തിക്കുന്ന സ്കൂളിനും ഇന്ന് അവധി നൽകി

പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി

അറ്റകുറ്റപ്പണിക്കിടെ ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു

കാലവർഷം കനത്തോടെ ജില്ലയിലെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷം മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുമുണ്ട് ചാലിയാറും പോഷകനദികളും നിറഞ്ഞുതുടങ്ങി

ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചില വിഭാഗങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശ്രീ

വിവരാവകാശ നിയമ ഭേദഗതി വിവരാവകാശ കമ്മീഷനുകളുടെ വിശ്വാസ്യത ചോദ്യാ ചെയ്യാനല്ലെന്നും അദ്ദേഹം പറഞ്ഞു

ബൊൻഗെയ്ഗാവുൻ ജില്ലയിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ കണക്കെടുപ്പ് നടന്നുവരികയാണെന്ന് ഡപ്യൂട്ടി കമ്മിഷണർ ആദിൽ ഖാൻ പറഞ്ഞു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇംറാൻ ഖാനുമായി വാഷിംഗ്ടണിൽ ഇന്നലെ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്

രാജ്യത്തെ ജനങ്ങളോട് മുൻകരുതലെടുക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി

ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് ഇതിനു പിന്നിലെന്ന വെനസ്വേല ആരോപിച്ചു

രാജ്യസഭ ഇന്നലെ അംഗീകരിച്ചു ബിൽ ലോക്സഭ നേരത്തേ പാസാക്കിയിരുന്നു

പുരുഷ സിംഗിൾസിൽ ഹർമീത് ഡായിയും വനിതാ സിംഗിൾസിൽ ഐഹിക മുഖർജിയും മികച്ച കളിക്കാർക്കുള്ള പട്ടത്തിനർഹരായി